കെ യിൽ നിന്നും ഇന്ത്യയിലെത്തി കോവിഡ് സ്ഥിരീകരിച്ച യാത്രക്കാരുടെ സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം യോഗം ചേർന്നു

ടി ഇൻവോയ്സുകൾ തടയുന്നതിന് വിജ്ഞാപനം പുറത്തിറക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമലാ സീതാരാമൻ

വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ്

സംസ്ഥാനങ്ങളിലെ കർഷകരുമായി ചടങ്ങിൽ പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ അനുഭവങ്ങൾ കർഷകർ പങ്കുവെയ്ക്കും

സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ് പ്രധാനമന്ത്രി പശ്ചിമ ബംഗാൾ ഗവർണർ ജഗ്ദീപ് ധൻകർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിശാങ്ക് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും

കെ യിൽ നിന്നും ഇന്ത്യയിലെത്തി കോവിഡ് സ്ഥിരീകരിച്ച യാത്രക്കാരുടെ നിലവിലെ സ്ഥിതിയും മറ്റും വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷണിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വെർചലായി യോഗം ചേർന്നു ഒരു റിപ്പോർട്ട്

കെ യിൽ നിന്നും മഹാരാഷ്ട്ര കർണാടക തെലങ്കാന തമിഴ്നാട് പശ്ചിമ ബംഗാൾ ഗോവ പഞ്ചാബ് ഗുജറാത്ത് കേരളം എന്നിവിടങ്ങളിലെത്തിയ യാത്രക്കാരുടെ ആരോഗ്യനില സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി വീഡിയോട് കോൺഫറൻസിലൂടെ ആശയവിനിമയം നടത്തി കൊറ്റോണ് വൈറസിന്റെ പുതിയ വകഭേദം യു കെ യിൽ തിരിച്ചറിഞ്ഞതിന്റെ തുടർന്ന് സാംക്രമിക രോഗ നിരീക്ഷണ മന്ത്രാലയം പുറൃത്തിറക്കിയ മാതൃകാ പ്രവർത്തനചട്ടം യോഗത്തിൽ വിശദമായിട്ട് ച്ചർച്ച ചെയ്തു

കെ യിൽ നിന്നും ഇന്ത്യയിലെത്തുന്ന യാത്രക്കാരുടെ വിശദാംശങ്ങൾ എയർ സുവിധ പോർട്ടൽ വഴി പരിശോധിക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിൾ ജീനോം സ്വീക്വൻസിങ് പരിശോധന സൌകര്യമുള്ള ലബോറട്ടറികളിലേയ്ക്ക് അയയ്ക്കാനും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നിലവിൽ ആറ് ലബോറട്ടറികളാണ് രാജ്യത്തുള്ളതെങ്കിലും അവയുടെ എണ്ണം വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് പുതിയ പ്രോട്ടോക്കോൾ പാലിക്കുന്നതിന് വിമാനത്താവള ആരോഗ്യ ഓഫീസ് നിരീക്ഷണ ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഏകോപനം നടത്താനും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു

കെ യിൽ നിന്നുള്ള ചരക്ക് നീക്കത്തെപ്പറ്റി സംസ്ഥാനങ്ങൾ ഉന്നയിച്ച ആശങ്കകളും യോഗത്തിൽ ചർച്ച ചെയ്തു

സി എം ആർ ഡയറക്ടർ ജനറൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാർ തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു

ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത കൈവിടരുതെന്നും നിതി ആയോഗ് അംഗം ഡോക്ടർ വി

പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു

ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയെ സംബന്ധിച്ചു ചില മാധ്യമ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയത്

ഉന്നതതല ഉഭയകക്ഷി സഹകരണം പ്രതിരോധം സുരക്ഷാ സഹകരണം എന്നീ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി

ടി ഇൻവോയ്സുകൾ ത്ടയുന്നതിന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയതായി മന്ത്രി നിർമലാ സീതാരാമൻ വ്യക്തമാക്കി

എസ്

ആറ് മാസത്തിൽ കൂടുതലായി റിട്ടേണുകൾ സമർപ്പിക്കാത്തവരുടെ ജി

ടി രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നാണ് പാർലമെന്റ് പാസാക്കിയ നിയമത്തിലുള്ളത് അതുകൊണ്ടുതന്നെ കാരണങ്ങളില്ലാതെ ജി

ടി രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും ശ്രീമതി നിർമലാ സീതാരാമൻ വ്യക്തമാക്കി

കേന്ദ്ര മന്ത്രിസഭാ തീരുമാനത്തിലൂടെ പട്ടികജാതി സമുദായത്തിലെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരം പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു ലഭ്യമാകുമെന്ന് രാജ്യത്തെ യുവാക്കൾക്ക് മികച്ചതും ചിലവു കുറഞ്ഞതുമായ വിദ്യാഭ്യാസം നൽകുക എന്നത് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ജനങ്ങൾക്ക് നിർദ്ദേശങ്ങളും ആശയങ്ങളും നമോ ആപ്പ് മൈ ജിഒവി ഫോറം എന്നിവ വഴി നൽകാവുന്നതാണ് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളും പരിപാടി സംപ്രേഷണം ചെയ്യും

ഒളിവിൽ കഴിഞ്ഞിരുന്ന സൈപ്രസിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തിയ നിജ്ജാറിനെ ദൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്ത്ത് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഗൂഢൂല്ലോപ്ന നടത്തിയ കേസിലെ പ്രതിയാണ് നിജ്ജാർ

തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രോഗവ്യാപന സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറഞ്ഞതുപോലെ വീണ്ടും കോവിഡ് വ്യാപനം കൂടി വരികയാണ്

പ്രത്യേക സമ്മേളനത്തിന് അനുമതി തേടിയത് വ്യവസ്ഥാപിത ചട്ടപ്രകാരമല്ലെന്ന് ഗവർണർ അറിയിച്ചു

ശിവശങ്കറും സ്വപ്നയും ഉൾപ്പെടെ നാല് പേരുടെ ബാങ്ക് നിക്ഷേപങ്ങൾ അടക്കമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് ഉത്തരവിട്ടു

ഡി അലി അസ്ഗർ പാഷ അറിയിച്ചു

ഉപഭോക്താവ് എന്ന നിലയിൽ വ്യക്തിക്കുള്ള അവകാശം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനുള്ള ആഹ്വാനമാണ് ഉപഭോക്തൃദിനം നൽകുന്നത്